സംഭവത്തിൽ സി ബി

ജെ പി എം

പരിശീലന ശില്പശാലയുള്ളട് സ്മാ്പന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

കേരളത്തിൽ ലോക്കെപ്പ് മർദ്ദനവും മൂന്നാംമുറയും ന് അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി

ഫൈനലിൽ ഇന്ത്യയുടെ സത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ചൈനീസ് ജോഡിയുമായി ഏറ്റുമുട്ടും

എന്നാൽ ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല

ജെ

മാർക്കായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന പരി ശീലന പരിപാടി അഭ്യാസ് വർഗ്ഗയുടെ സമാപന സമ്മേളനത്തെ പ്രധാന മന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും മന്ത്രിയോ നിയമസഭാംഗമോ ആയാലും അടിസ്ഥാന തലത്തിലെ പ്രവർത്തകരായി തന്നെ നിലകൊള്ളണമെന്ന് ബി ജെ

മാരോട് ഉദ്ഘാടന വേള യിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു

ജെ

എന്നത് മൌലികമായ അസ്തിത്വമാണെന്നും പലതരത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട തല്ലെന്നും ശ്രീമോദി പറഞ്ഞു കുടുംബ മാഹാത്മ്യമല്ല മറിച്ച് ബി ജെ പി യുടെ ആശയങ്ങളും ചിന്തകളുമാണ് ഈ നിലയിൽ വളരാൻ പാർട്ടിയെ സഹായിച്ചതെന്ന് ശ്രീ മോദിയെ ഉദ്ധരിച്ചു കൊണ്ട് പാർലമെന്ററികാര്യ മന്ത്രി പ്രഹ്താദ് ജോഷി പറഞ്ഞു

ഹൈദരാബാദിൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശീയമായി വികസിപ്പിച്ചു ക്ഷോങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സൈനൃത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിർവ്വഹിക്കുമെന്നും പ്രതിരോധ മന്ത്രി വൃക്തമാക്കി പ്രാദ്ദേശിക ആഗോളതലത്തിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുക എന്നതാണ് ഇന്ത്യയുടെ പ്രതിരോധ നയമെന്നും അദ്ദേഹം വൃക്തമാക്കി നിർമ്മാണ മേഖലയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങളിലൂടെ രാജ്യത്തെ അഞ്ച് ട്രില്യൺ സമ്പദ് വ്യവസ്ഥ ആക്കുന്നതിൽ പ്രതിരോധ മേഖല നിർണ്ണായക പങ്ക് വഹിക്കുമെന്നും ശ്രീ

തട്ടിക്കൊണ്ടു പോകൽ കൊലപാതകം കവർച്ച തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിരുന്നതായി അന്വേഷണ സംഘം സൂപ്രണ്ട് എൻ

ബ്രാർ വാർത്താ ലേഖകരോട് പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹിട്ടും

അമർനാഥ് യാത്രയിൽ ആക്രമണം നടത്താൻ തീവ്രവാദ സംഘടനകൾ പദ്ധതി ഇട്ടിരുന്നതായി നേരത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അമർനാഥ് തീർത്ഥാടകരുടെയും വിനോദ സഞ്ചാരികളുടെയും തിരക്കിനെ തുടർന്ന് ശ്രീനഗറിൽ നിന്നുള്ള വിമാനയാത്ര നിരക്കുകൾ നിയന്ത്രിക്കണ മെന്ന് കേന്ദ്ര വ്യോമയാനമന്ത്രി ഹർദ്ദീപ് സിംഗ് പുരി എല്ലാ എയർലൈൻ കമ്പനികളോടും ആവശ്യപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഡൽഹി ഐ ഐ ടി യിൽ ടെക്നോളജി എക്സ്പോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു

ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയ്ക്കു ഒന്നര കോടി രൂപ വീതവും അലഹാബാദ് ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയ്ക്ക് രണ്ടു കോടി രൂപ വീതവുമാണ് പിഴ

സൈബർ സുരക്ഷ സംബന്ധിച്ച നിബന്ധനകൾ പാലിക്കാത്തതിന് കോർപ്പറേഷൻ ബാങ്കിന് ഒരു കോടി രൂപയും പിഴയിട്ടതായി ആർ

ഐ വാർത്താ കുറിപ്പിൽ അറിയിച്ചു

ഇന്ന് പുലർച്ചെയാണ് രാഷ്ട്രപതി ഡൽഹിയിൽ തിരിച്ചെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

ഏഴു ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിനിട യിൽ മൂന്നു രാജ്യങ്ങളിലെയും ഭരണാധികാരികളുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ച നടത്തി വാണിജ്യം നിക്ഷേപം ഊർജ്ജം തുടങ്ങിയ മേഖലകൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം നല്കിയത് ഗിനിയയി ലെയും ഗാംബിയയിലെയും ദേശീയ അസംബ്ലീകളേയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു ഈ രാജ്യങ്ങളിലെ ഇന്ത്യൻ സമൂഹവുമായി ശ്രീ

സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ബനിനുമായി രണ്ട് സുപ്രധാന ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പു വച്ചു

ഗിനിയയുടെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡ് രാഷ്ട്രപതി ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് ആകാശവാണി

തൃശ്ശൂരിൽ വനിതാ പോലീസ് ബെറ്റാലിയൻ രണ്ടാമത്തെ ബാച്ചിന്റെ പാസിംഗ്ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചിലരുടെ സമീപനം സേനയുടെ നേട്ടങ്ങളെ കുറച്ചുകാണിക്കുന്ന തരത്തി ലുള്ളതാണെന്നും ഏത് ഉന്നതനായാലും പ്രത്യേക പരിഗണനയില്ലെന്നും തെറ്റ്ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

റോഡ് സുരക്ഷ കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് നടപടി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് പരിശോധന നടത്തുക

ഇന്നലെ നടന്ന സെമിഫൈനലിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയുടെ കൊ സുംഗ് ഹുയാൻ ഷിൻ ബേക്ക് ചിയോൾ സഖ്യത്തെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ എത്തിയത്

മൂന്നു മത്സരങ്ങളുള്ള പരമ്പരയില്ലി ആദ്യ കളിയിൽ നാലു വിക്കറ്റിന് ഇന്തൃ വെസ്റ്റ് ഇൻഡീസിനെ പര്യാജ്യപ്പെടുത്തിയിരുന്നു

മുഖ്യമന്ത്രി വിജയ ്രൂപാണി ഇന്നലെ രാത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്രം സന്ദർശിച്ചു പ്രളയരക്ഷാ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതേസമയം വിശ്വാമിത്രി നദിയിലെ ജല നിരപ്പ് കുറയുന്നത് പ്രളയം ഉണ്ടായ വഡോദരനഗരത്തിന് ആശ്വാസമാകുന്നുണ്ട്

നാളെ മുതൽ ഇവിടെ സ്കൂളുകളും കോളേജുകളും തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്

നഗരവികസന അതോറ്റി നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികൾ സംഘം കമ്മീഷണറുമായി ചർച്ച ചെയ്തു സംയോജിത നഗരവികസന പദ്ധതികളുടെ രൂപരേഖയും നടത്തിപ്പും സംഘത്തെ കമ്മീഷണർ അറിയിച്ചു നഗര അതോറിറ്റിയുടെ പദ്ധതികളിൽ ജർമ്മൻ ബാങ്കിന്റെ സഹകരണം പദ്ധതി നടത്തിപ്പിന് വലിയ നേട്ടമാണെന്ന് കമ്മീഷണർ ആർ എ രാജീവ് വാർത്താ കുറിപ്പിൽ അറിയിച്ചു

നിരവധി പേർക്ക് പരിക്കേറ്റു